പുരസ്കാരം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു

ജമ്മുകാശ്മീരിൽ സുരക്ഷിതമായ സേനാനീക്കം ഉറപ്പാക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ സി

ഹർത്താലിൽ ചിലയിടങ്ങളിൽ അക്രമം

ടൂർണമെന്റിൽ ഇന്ത്യൻ താര്യങ്ങൾ അഞ്ച് മെഡലുകൾ ഉറപ്പിച്ചു

കൂടിക്കാഴ്ചയ്ക്കു ശേഷം നിരവധി കരാറൂകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അർജന്റീനിയൻ പ്രസിഡന്റ് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ അർജന്റീന ബിസിനസ് ഫോറത്തിന്റെ സമ്മേളനത്തെ മാക്രി അഭിസംബോധന ചെയ്യും

ഇന്നലെയാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്ത്യയിലെത്തിയത്

സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ഗോപാലസ്വാമി ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് അധ്യക്ഷൻ വിനയ് സഹസ്രബുദ്ധേ എന്നിവരാണ് ജൂറി അംഗങ്ങൾ

ഹരിയാന ഗവ്ടൺമെന്റ് സംഘടിപ്പിച്ച നാലാമത് കാർഷിക നേതൃത്വ ഉച്ചക്ട്രിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിലൂടെയുള്ള മലിനീകരണത്തെ പ്രതിരോധിക്കാൻ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ കർഷകർക്ക് കഴിയുമെന്നും ശ്രീ കോവിന്ദ് പ്രത്യാശ പ്രകടിപ്പിച്ചു

ഒരു മേജർ ഉൾപ്പെടെ നാല് സൈനികർക്ക് വീരമൃത്യു കൊല്ലുട്ടിപ്പട്ട തീവ്രവാദികളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഭീകരർ ഒളിച്ചുത്രാമസിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നള്ളി അർദ്ധരാത്രിയോടെ പിങ്ക്ളിന മേഖലയിൽ സേന നടത്തിയി ്തിര്ച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഒളിച്ചിരുന്നു ഭീകരർ സേനാംഗങ്ങൾക്ക് നേരെ വെടിവയ്ക്കുകയായിരുന്നു

എഫ് തീരുമാനം വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

സേനാ നീക്ക നടപടികളിൽ ഉടൻ തന്നെ ചില പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സി

എഫ് ഡയറക്ടർ ജനറിൽ ആർ

ഗതാഗത നിയന്ത്രണങ്ങൾക്ക് പുറമേ സേനാ നീക്കത്തിന്റെ സമയക്രമങ്ങളിലും അ്തിന്റെ ഇടത്താവളങ്ങളിലും പുതിയ ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തുമെന്നും നിലവിലുള്ളവയിൽ പുതിയ ചില ക്രമീകരണങ്ങൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സേനാ നീക്കങ്ങളുടെ സമയത്ത് അതുവഴിയുള്ള പൊതുഗതാഗതം പൂർണ്ണമായും തടയുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നഗത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചത് മേഖലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുവരികയാണെന്നും കർഫ്യൂ നീട്ടുന്നത് സംബന്ധിച്ച തീരുമാനം പിന്നീട് ഉണ്ടാകുമെന്നും അധികൃതർ ആകാശവാണിയോട് പറഞ്ഞു

അഭ്യൂഹങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാകരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

ഇടക്കാല ബജറ്റിലെ പ്രധാന കാര്യങ്ങളെപ്പറ്റി ശ്രീ ജെയ്റ്റ്ലി സംസാരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രത്തിന് നൽകേണ്ട ഇടക്കാല വിഹിതത്തെപ്പറ്റിയും യോഗം ചർച്ച ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു

നാല് ദിവസം വാദം തുടരും

റിട്ടയേർഡ് നാവിക ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ സൈനിക കോടതി ച്ഛാരവൃത്തി ആരോപിച്ച് വധശക്ഷ വിധിച്ചിരുന്നു

എന്നാൽ ബിസിനസ് ആവശൃത്തിനായി ഇറാനിൽപോയ ജാദവിനെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് ഇന്ത്യയുടെ വാദം

മൊറോക്കൻ വിദേശകാര്യമന്ത്രി നാസർ ബൌറീത്ത രാജാവ് മുഹമ്മദ് ആറാമൻ പ്രധാനമന്ത്രി സാദ് ദിൻ അൽ ഒത്മാനി എന്നിവരെ ശ്രീമതി സുഷമ സ്വരാജ് സന്ദർശിക്കും ഭീകരവിരുദ്ധ പ്രവർത്തനം ഭവനകാര്യം യുവജനക്ഷേമം എന്നീ വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണാ പത്രത്തിൽ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

കുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒട്ടേറെ സഞ്ചാരികളാണ് എത്തുന്നത്

വോയിസ് കുംഭമേളയ്ക്കായി എത്തുന്ന വിദേശ സന്ദർശകരുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വർധിച്ചിട്ടുണ്ട്

സംസ്ഥാന ഗവൺമെന്റുമായും രാഷ്ട്രീയ പാർട്ടികളുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തും ്തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുമായുള്ള ചർച്ച ഇന്ന് ഉച്ചയ്ക്ക്ശേഷം നടക്കും ചെയർമാൻ എൻ കെ സിംഗിന്റെ നേതൃത്വത്തിലാണ് ധനകാര്യ കമ്മീഷൻ തെലങ്കാനയിൽ സന്ദർശനം നടത്തുന്നത്

തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടും കിളിമാനൂരും വാഹനങ്ങൾ തടഞ്ഞു

ജ്നജീവിതം സുഗമമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഡി ജി

എന്നാൽ ശ്രീ ചിദംബരം അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്